നിയമസഭ അടിയന്ത്രപ്രമേയം സംസ്ഥാനത്ത് അടച്ചുപൂട്ടിയ മദ്യശാലകൾ തുറക്കാനുള്ള ഗവൺമെന്റ് നീക്കത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി ശൂന്യവേളയിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നൽകിയ അടിയന്തരപ്രമേയ ചർച്ചയ്ക്ക് സ്പീക്കർ അനുമൃതി നിഷേധിച്ചു തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി സംസ്ഥാന്ത്ത് സുപ്രീംകോടതി വിധി നടപ്പാക്കുക മാത്രമാണ് ഗവൺമെന്റ് ചെയ്യുന്നത്തെന്നും കൂടുതൽ ബാറുകൾ തുറക്കുകയില്ലെന്നും പ്രതിപക്ഷത്തിന് മിനുപ്പടി നൽകിയ എക്സൈസ് മന്ത്രി ടി

ആദ്യ എഫ് ഐ

ഇ ഡി ലൈറ്റ് ഉപയോഗിച്ച് കടലിൽ മത്സ്യബന്ധനം നടത്തുന്നത് ഫിഷറീസ് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ദക്ഷിണേന്ത്യൻ ഫിഷറീസ് മന്ത്രിമാരുടെ യോഗം കേരളത്തിൽ വിളിച്ചുചേർക്കുമെന്നും മന്ത്രി അറിയിച്ചു

സഭപാഠപുസ്തകം ഹയർ സെക്കൻ്ററി പാഠപുസ്തൃക്ങൾ ഇംഗ്ലീഷിനു പുറമെ മലയാളത്തിൽ കൂടി തയ്യാറാക്കി നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പ്രൊഫ

പരിഭാഷപ്പെടുത്തുന്നതോടൊപ്പം മലയാളത്തിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ് സാങ്കേതിക ശബ്ദാവലി മലയാളത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടി പുരോഗമിച്ച് വരുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു